ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചേക്കും

എഫിന്റെ സ്റ്റേവനം പ്രശംസാർഹമാണ്ട്രെന്ന് പ്രിധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ഏകദിനം ഇന്ന് മൊഹാലിയിൽ

കമ്മീഷന്റെ സമ്പൂർണ്ണയോഗം ഇന്ന് ന്യൂഡൽ ്ഥിയിൽ ചേരുകയാണ്

ഇക്കാരൃം ചൂണ്ടിക്കാട്ടി കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷൻമാർക്ക് കത്തയച്ചു ചില പാർട്ടികൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി

എഫിന്റെ പ്രവർത്തനം ശ്ലാഘനീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ സി ഐ എസ്

ൂതിക്കൃത്ത ജാഗ്രതയോടെയാണ് രാജ്യത്തിന്റെ വികസനത്തിലും ്പളർച്ചയിലും സി ഐ എസ് എഫ് ജവാൻമാർ പങ്കാളികളാക്ടുന്നത് വിശിഷ്ട വ്യക്തികൾ മുതൽ സാധാരണ ജന്ങ്ങളുടെവരെയുള്ള സുരക്ഷ സി ഐ എസ്

ഐ എസ് എഫിൽ അംഗങ്ങളായ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

എസ് എഫ് പരേഡിൽ പ്രധാനമന്ത്രി അഭിവാദ്യം ഏറ്റുവാങ്ങി സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് ഫയർ സർവ്വീസ് മെഡലുകൾ അദ്ദേഹം സമ്മാനിച്ചു

കോസ്റ്റോറിക്കയിലെ സാൻജോസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി സുരേഷ് വോയിസ് ഇന്ത്യ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞെന്നും ആഗോള നിക്ഷേപത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായെന്നും ഉപരാഷ്ട്രപതിക്ക പറഞ്ഞു

കഴിവും തൊഴിൽ പ്രാവീണ്ട്യും മികവുറ്റതാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉത്തർപ്രദേശിലെ നോയിഡയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചശേഷം പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മുംബ്ലൈ ഭീകരാക്രമണം ഇന്ത്യ ഒരിക്കലും മറക്കില്ലെന്നും ഗവൺമെന്റ് പുള് ഈ ആക്രമണത്തോട് ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നു്വെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തെ പ്രിയേരിടാൻ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് ഗവൺമെന്റ് ആവിഷ്ക്കരിച്ചിട്ടുള്ളത്

ബാലാകോട്ട് ആക്രമണത്തെക്കുറിച്ചുള്ള തെളിവ് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ നിലപാടിനെയും പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു

കർണാടകയിലെ മംഗ്ളൂരുവിൽ ബി ജെ പി യുടെ ശക്തികേന്ദ്ര ഭാരവാഹികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്തൃ ആരെയും പ്രകോപിപ്പിക്കില്ല എന്നാൽ മറ്റുള്ളവരുടെ പ്രകോപനത്തെ ശക്തമായി നേരിടുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു

പൂഞ്ച് ജില്ലയിലെ കൃഷ്ണ ഘാട്ടി സെക്ടറിൽ പുലർച്ചെ നാല് മണിയോടെ പാക്സേന പ്രക്യോപിനം കൂടാതെ വെടി ഉതിർക്കുകയും ഷെല്ലാക്രമണം നൂട്ത്തുക്യും ചെയ്തു ഇന്ത്യൻ സൈന്യം തിരിച്ചും വെടി ഉതിർത്തു

ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും അഞ്ച് വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കേന്ദ്ര ഭവനനിർമ്മാണ നഗരകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് എൽ ഡി എഫിന്റെ മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും പാലക്കാട്ടാണ് ആദ്യ കൺവെൻഷൻ കോൺഗ്രസിന്റെ ല്ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക നാളെയും മറ്റെന്നൂർളുട്ട് ഡൽഹിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മറ്റി യോഗത്തിന്റുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും

ജെ

സ്ഥാന്ാർത്ഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമാകുമെന്നാണ് സൂചന ഗവർണർ സ്ഥാനം രാജിവച്ച കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്

ജെ

യുടെ പരിവർത്തന യാത്രകൾ ഇന്ന് പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാകും

ഇതോടെ ശതമാനം ഒ

ഇറാൻ പ്രസിഡന്റ് ഹസ്സൻ റുഹാനിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇറാൻ സുരക്ഷാ ഗാർഡുകൾക്കെതിരെയുണ്ടായ ബോംബാക്രമണത്തെ തുടർന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായിരുന്നു

സംഭവത്തിന്റെ ഉത്തരവാദിത്തം ജയ്ഷ് ഉൽ അദിൽ ഏറ്റെടുത്തിരുന്നു

മേയ് ൽ ആരംഭിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾക്ക് മുൻപുള്ള അവസാന ഏകദിനമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്

ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എം

ധോണിയ്ക്ക് അടുത്ത രണ്ട് മത്സരങ്ങളിൽ വിശ്രമം അനുവദിച്ചിട്ടുണ്ട് കാലിലെ പരിക്കിനെ തുടർന്ന് മുഹമ്മദ് ഷമി രണ്ടു മത്സരങ്ങളിലും കളിക്കാൻ സാധ്യതയില്ല പരമ്പര സ്വന്തമാക്കി ലോകകപ്പിന് സജീവമാവുക എന്ന ലക്ഷ്യവുമായാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്

ഏഷ്യൻഗെയിംസ് മെഡൽ ജേതാവ് ശിവഥാപ ലോക യൂത്ത് ചാമ്പ്യൻ സച്ചിൻ സിവാച്ച് കോമൺഏപ്ൽത്ത് വെങ്കല മെഡൽ ജേതാവ് മുഹമ്മദ് ഹുസാമുദ്ദീൻ ക്വീന്ദ്രർ സിങ്ങ് ബിഷ്ത് ദിനേശ് ദാഗർ നവീൻ കുമാർ എന്നിവരാണ് സെമിയിലെത്തിയത്

മുംബൈയിൽ നടക്കുന്ന ചർച്ചയിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ എൻ

സർവ്വകലാശാലകളുടെ സ്വയംഭരണ അവകാശം തകർക്കാനും സുപ്രധാന തസ്തികകളിൽ പാർട്ടി ബന്ധുക്കളെ നിയമിക്കാനുമാണ് നിയമഭേദഗതി എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

ശ്രീകോവിലിന്റെ സ്വർണ്ണം പൊതിഞ്ഞ പുതിയ വാതിൽ നാളെ സ്ഥാപിക്കും വാതിൽ സമർപ്പണ ഘോഷയാത്ര ഇന്നു പള്ളിക്കത്തോട് ഇളംപള്ളി ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ പുറപ്പെട്ടു

അഞ്ചു വയസിൽ താഴെയുള്ള ഒന്നരലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്നുകൾ നൽകുന്നത്